ഓണം അന്തർദേശീയ ആഘോഷ്മായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഭാരതത്തിന്റെ സമഗ്രവളർച്ചയ്ക്ക് ആത്മനിർഭർ ഭാരത് പദ്ധതി അത്യന്താപേക്ഷിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശീയ കളിപ്പാട്ട നിർമാണരംഗത്ത് രാജ്യം സ്വയംപര്യാപ്തമാകണമെന്നും പ്രധാനമന്ത്രി

കോവിഡ് പ്രതിസന്ധിയിൽ ആഘോഷം വീടുകളിലൊതുങ്ങിയെങ്കിലും മലയാളിക്കിത് ഗൃഹാതുരത്വത്തിന്റെ മധുരസ്മരണ തന്നെയാണ്

എന്നലവയെല്ലാം മറികടന്ന് ദുരിതകാലത്തിനൊപ്പം നടന്നുകൊണ്ട് ഓണത്തെ വരവേൽക്കുകയാണ് ഇത്തവണ നമ്മൾ

കൂടിച്ചേരലുകൾക്ക് പകരം വീട്ടോണമായി ആഘോഷം ചുരുങ്ങുമെങ്കിലും മലയാളിയുടെ മനസിൽ പൂവിളിയും സമൃദ്ധിയും തുടികൊട്ടുക തന്നെ ചെയ്യും ദുരിതകാലത്തെ പ്രതിരോധിച്ച് അതിജീവനത്തിന്റെ പുതിയ മന്ത്രവുമായി നമുക്കീ ഓണം ആഘോഷമാക്കാം

വെങ്കയ്യനായിഡു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖൃമന്ത്രി പിണറായി വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം അതിജീവിക്കാൻ കേരളത്തിന് കരുത്തേകിയ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമാണ് ഈ വർഷത്തെ ഓണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് അദ്ദേഹം ആശംസപകർന്നു

നൂറു ദിവസം കൊണ്ട് നൂറ് പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഭക്ഷ്ടൂകിറ്റ് വിതരണം നാലുമാസം കൂടി തുടരും

ആരോഗ്യവകുപ്പിൽ ആവിശ്യ്മങ്കിൽ കൂടുതൽ നിയമനങ്ങൾ നടത്തും

പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ രാവിലെയും വൈകിട്ടും ഒ പി സൌകര്യമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും

ഇപ്പോൾ നിലവിലുള്ള കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണത്തിന്റെ മൂന്നര ഇരട്ടിയിലധികംപേർ ഇതുവരെ രോഗമുക്തി നേടി

പുതുതലമുറയ്ക്ക് നിരവധി ആത്മനിരക്ഭർ നവീനാശയങ്ങൾ ഭാരത് മുന്നോട്ടുവെക്കുന്നതുകൊണ്ടുതന്നെ ഇത് വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാവി കൂടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

തദ്ദേശീയ കളിപ്പാട്ടനിർമാണ രംഗത്ത് സ്വയം പര്യാപ്തമാകേണ്ട കാലി പ്ലിട്ട്മാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ കൂടുതലും തിരുവനന്തപുരം ജില്ലയിലാണ്

എസ് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം

പുരുഷവിഭാഗത്തിൽ നൊവാക് ജോക്കോവിച്ചും വനിതാവിഭാഗത്തിൽ കരോളിന പ്ലിസ് കോവയുമാണ് ഒന്നാം സീഡുകൾ ഗ്രാന്റ് സ്താം ടൂർണമെന്റുകളുടെ ചരിത്രത്തിൽ ആദ്യമായി കാഴ്ചക്കാരില്ലാതായത് ഇക്കുറി മത്സരം നടക്കുന്നത്

ചിലയിടങ്ങളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞ് തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ബ്രാഹ്മണി ബൈതരണി തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് താഴ്ന്ന് വരികയാണ്

കഴിഞ്ഞ ഏഴ് വർഷത്തെ കണക്ക് പ്രകാരം ആഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ വർഷമാണ്

അടുത്ത ആറ് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ ഇടയ്ക്കിടെ മിതമായ അളവിനു മഴ ലഭിക്കുമെന്ന് കാലാവസിമ്റ്റ്കുപ്പ് അറിയിച്ചു

പരീക്ഷണാടിസ്ഥാനത്തിൽ വിപണികൾ തുറക്കാൻ കഴിഞ്ഞയാഴ്ച ദുരന്ത നിവാരണ അതോറിട്ടി അനുവാദം നല്കിയിരുന്നു മുനിസിപ്പൽ മേഖലകളിൽ പ്രതിദിന ഒരു മാർക്കറ്റ് എന്ന രീതിയിൽ തുറക്കാനാണ് അനുവാദം നല്കിയത്

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് രാവിലെ ഉപവവാസ സമരം നടത്തും

സി

അതേസമയം യുവമോർച്ചാ സ്ട്സ്ഫാ്ന പ്രസിഡന്റ് സി ആർ പ്രഫുൽകൃഷ്ണൻ ഇന്ന് സെക്രട്ടറീയേറ്റിന് മുന്നിൽ ഓണം ഉണ്ണാതെ ഉപവാസ സമരം നടത്തും